ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌതാല ഉപമുഖ്യമന്ത്രിയായി സത്യ പ്രതിജ്ഞ ചെയ്യും

നിലവിൽ സൈനികർക്കും തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ഉദ്യോ ഗസ്ഥർക്കുമാണ് തപാൽ വോട്ടിന് അർഹതയുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരി പാടി മൻ കി ബാത് ഇന്ന്

ദൂരദർശനും പരിപാടി സംപ്രേഷണം ചെയ്യുന്നുണ്ട്

രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കും

തിന്മയുടെ മേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന ദീപാവലി തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ആഘോഷിക്കുന്നത് മൺവിളക്കുകൾ തെളിയിച്ചും പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും രാജ്യമെങ്ങും ദീപാവലി ആഘോഷിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻവർഷങ്ങളിലെ പോലെ ഇത്തവണയും സൈനികരോടൊപ്പം ദീപാവലി ആഘോഷി ക്കും

മാനവ സ്നേഹത്തിന്റെ വെളിച്ചും നാടാകെ പരത്താൻ ദീപാവലി ആഘോഷങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു

ഒരു ലക്ഷം വീടുകളുടെ നിർമ്മാണം പുരേഗമി ക്കുകയാണ്

ലലലലലലലലലലലല പ്രളയദുരന്തത്തിൽ നിന്നും കരകയരാൻ സമൂഹം മുൻകൈയ്യെടുക്കുന്ന ഇടപെടലുകൾ മാതൃക പ്രമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു

ഇവയടക്കം വകുപ്പ് ആവിഷ്ക്കരിച്ച പദ്ധതികൾ പോരാ യ്മകൾ ഇല്ലാതെ നടപ്പാക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി തിരുവനന്തപുരത്ത് പട്ടികജാതി വികസന പദ്ധതികൾ സംബന്ധിച്ച ഉപദേശക സമിതിയോഗത്തിൽ അധ്യ ക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി ലലലലലലലലലലലല കോളേജ് ക്യാമ്പസുകളെ ലഹരി വിമുക്തമാക്കുന്നതിന് പ്രത്യേക പദ്ധതി നവംബർ ഒന്ന് മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി പ്രഫ

പോലിസ് എക് സൈസ് ആരോഗ്യം തുടങ്ങിയ വകുപ്പുകൾക്കു പുറമെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സമൂഹത്തിന്റെയും പിന്തുണയോടെയാണ് പദ്ധതി നടപ്പിലാക്കുകയെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു

ബ്രഹ്മപുരത്തെ ഖര മാലിന്യ സംസ്ക്കരണത്തിലെ പാളിച്ചകളുടെ പേരിലാണ് പിഴ ചുമത്തി യത് ഖരമാലിന്യ സംസ്ക്കരണത്തിൽ ചട്ടങ്ങൾ നഗരസഭ ലംഘിച്ചെന്ന് ബോർഡ് അറിയിച്ചു ലലലലലലലലലലലല ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഗുവാഹത്തിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്ക് ഒഡീഷ എഫ് സിയെ തോൽപ്പിച്ചു

ഇന്ന് മുംബൈയിൽ ചെന്നൈയിൻ എഫ് സി മുംബൈ സിറ്റിയെ നേരിടും

ഇന്നലെ നടന്ന് മത്സരത്തിൽ ഗോകുലം എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഐ ലീഗ് ചാംപ്യൻമാരായ ചെന്നൈ സിറ്റി എഫ് സി യെ പരാജയപ്പെടുത്തി നാളെ വൈകീട്ട് സെമിഫൈനലിൽ ഗോകുലം ചിററഗോംഗ് അബഹാനിയെ നേരിടും ലലലലലലലലലലലല കണ്ണൂിൽ സമാപിച്ച സംസ്ഥാന സ്കൂൾ ഗൂസ്തി മത്സരത്തിൽ തിരുവന്തപുരം ജേതാക്കളായി കണ്ണൂരിനാണ് രണ്ടാം സ്ഥാനം സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ മൂന്ന് മുതൽ അഞ്ച് വരെ കുന്നംകുളത്ത് നടക്കും ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കണ്ടറി സ്കൂളിലെ അഞ്ച് വേദികളിലാ യാണ് മത്സരം നടത്തുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറ ക്ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു

ചുഴലിക്കാറ്റിന്റെ സ്വാധീനപരമായി സംസ്ഥാനത്ത്വിവിധ യിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറി യിപ്പിൽ പറയുന്നു ഇടുക്കി പത്തനംതിട്ട മലപ്പുറം കോഴി ക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് കനത്ത മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

കുതിരാൻ ദേശീയ പാതയിലെ കുഴികൾ അടയ്ക്കാൻ അടിയന്തിര നടപടി തുടങ്ങുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ അറിയിച്ചു മഴയില്ലെങ്കിൽ രണ്ടു ദിവസത്തിനകം കുഴിയടച്ച് ടാറിങ്ങ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും വലിയ കണ്ടെയ്നർ വാഹനങ്ങൾ വഴി തിരിച്ചു വിടാനോ രാത്രി പത്തിന് ശേഷം മാത്രം കുതിരാനിൽ പ്രവേശിപ്പിക്കുവാനോ നടപടി കൈക്കൊള്ളും ഈ സാഹചര്യത്തിൽ നവംബർ ഒന്ന് മുതൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സമരത്തിൽ നിന്നും ബസ് ഉടമകൾ പിന്മാറണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു തൃശൂർ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ബസ് ഉടമകൂടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്

ഇതു കണ ക്കിലെടുത്താണ് ശീതകാല സർവ്വീസുകൾ ക്രമപ്പെടുത്തിയി ട്ടുള്ളത്

ഈ സമയത്തെ വിമാനങ്ങൾ രാത്രിയിലേക്ക് പുനഃക്രമീകരി ച്ചിട്ടുണ്ട്

അപകടം കുറയ്ക്കുന്നതിന് സഹായകരമായ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നും കെ

ആബിദ് ഹുസൈൻ തങ്ങൾ എം

എ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറഞ്ഞു

അന്വേഷണത്തിൽ പൊലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയു ണ്ടായെങ്കിൽ അത് പരിശോധിച്ച് തുടർനടപടി സ്വീകരിക്കു മെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ലലലലലലലലലലലല മലയോര മേഖലയിൽ മത്സൃകൃഷി വ്യാപിപ്പിക്കുന്നതിനായി സ്വകാര്യ വ്യക്തികളും ഫിഷറിസ് വകുപ്പും സഹകരിച്ച് മത്സ്യ ഉത്പാദനവും വിപണനവും വശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി എം എം മണി പറഞ്ഞു ഇടുക്കി വാത്തികുടി പഞ്ചായത്തിലെ തോപ്രാംകുടിയിൽ ഉൾനാടൻ ശുദ്ധജല മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യാന്തര കാർഷിക കരാറായ ആർ സി ഇ പി യിൽ നിന്നും ക്ഷീരമേഖലയെ ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവണമെന്ന് മന്ത്രി കെ രാജു പറഞ്ഞു കൊല്ലം ജില്ലാ ക്ഷീരസംഗമം താഴത്ത് കുളക്കടയിൽ ഉദ് ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കോഴിക്കോട് മൊഫ്യൂസൽ ബസ്റ്റാന്റിൽ കോർപറേഷൻ നിർമ്മിച്ച ബസ് ബേ ഉദ് ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

എഫ് ഗവൺമെൻറ് സ്വീകരിച്ചുവരുന്നതെന്ന് എ ഐ

മുൻ യു

എഫ് ഗവൺമെൻറ് നടപ്പാക്കിയ പല ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചു വെന്നും അദ്ദേഹം പറഞ്ഞു

സമ്മേളനം ഇന്ന് സമാപിക്കും താനൂർ അഞ്ചുടിയിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകൻ ഇസ്ഹാഖിനെ വെട്ടിക്കൊന്ന കേസിൽ മൂന്ന് പ്രതികളുടെ അറസ്റ്റ് പൊലീസ് രേഖപ്പെടുത്തി കുപ്പന്റെ പുരയ്ക്കൽ അബ്ദുൾ മുയ്സ് കുപ്പന്റെ പുരയ്ക്കൽ ത്വാഹാ മോൻ വേളിച്ചാന്റെ പുരയ്ക്കൽ മഹ്സൂദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്

ലലലലലലലലലലലല കോഴിക്കോട് കൂടത്തായ് കൊലപാതക കേസിന്റെ ഭാഗമായി സിലിയുടെ മകൾ ആൽഫൈന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ജോളിയുടെ അറസ്റ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ ജയിലിൽ എത്തി രേഖപ്പെടുത്തും കോടതി ഇന്നലെ ഇതിന് അനുമതി നൽകിയിരുന്നു സിലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേസിൽ എം എസ് മാത്യുവിന്റെ അറസ്റ്റ് അന്വേഷണസംഘം രേഖപ്പെടുത്തി